ത തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കേന്ദ്രസഹമന്ത്രി വി

ത ആലുവയിൽ നാണയം വിഴുങ്ങി കുട്ടി മരിച്ച സംഭവത്തിൽ മന്ത്രി കെ കെ ശൈലജ അന്വേഷണത്തിന് ഉത്തരവിട്ടു

ദേദ സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു

കെ ഗോപിയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് രണ്ടാഴ്ചയായി ചികിത്സയിലായിരുന്നു ലോട്ടറി വിൽപ്പനക്കാരനായ ഗോപിയുടെ രോഗ ഉറവിടം വ്യക്തമല്ല രുദ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ കോവിഡ് സംശയത്തെത്തുടർന്ന് എത്തുന്ന എല്ലാവർക്കും കോവിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു പരിശോധന രാവിലെ ആരംഭിച്ചു കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഓപ്പറേറ്റീവ് സർജറി വാർഡിലെത്തിയ മൂന്നുപേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെത്തുടർന്നാണ് നടപടി രേര കോഴിക്കോട് ജില്ലയിൽ ഞായറാഴ്ച ലോക്ഡൌൺ തുടരുകയാണ് അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന ഏതാനും കടകളും മെഡിക്കൽ ഷോപ്പുകളും അനുബന്ധ സ്ഥാപനങ്ങളും മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത് രമ തമിഴ്നാട് ഇന്ന് സമ്പൂർണ്ണ ഞായർ ലോക്ഡൌണിലാണ് കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി പൊതു ഗതാഗതം ഉൾപ്പെടെ നിയന്ത്രിച്ചിട്ടുണ്ട് മെഡിക്കൽ ഷോപ്പുകളും അനുബന്ധ സ്ഥാപനങ്ങളും മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത് അടിയന്തര കാര്യങ്ങൾക്കല്ലാതെ സ്വകാര്യ വാഹനങ്ങളും നിരത്തിൽ ഇറക്കരുതെന്ന് പൊലീസ് നിർദ്ദേശം നൽകിയിരുന്നു ഈ മാസം മുഴുവൻ ഞായർ ലോക്ഡൌൺ തുടരുമെന്ന് മുഖ്യമന്ത്രി കെ പളനി സ്വാമി അറിയിച്ചിട്ടുണ്ട് ദേദ ഉത്തർപ്രദേശിൽ സാങ്കേതിക വിദ്യാഭ്യാസ മന്ത്രി കമൽ റാണി വരുൺ കോവിഡ് ബാധിച്ച് മരിച്ചു

രാവിലെ ഒമ്പതരയോടെയായിരുന്നു അവരുടെ അന്ത്യം രുദ കോവിഡ് മഹാമാരി കൂടുതൽ നീണ്ടേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി

രാജ്യങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക മേഖലകളിൽ കോവിഡ് ചെലുത്തുന്ന സമ്മർദ്ദം ശക്തമായിരിക്കുമെന്നും യോഗം അഭിപ്രായപ്പെട്ടു

രുദ കണ്ണൂർ ജില്ലയിൽ കോവിഡ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച അധ്യാപകരിൽ റിപ്പോർട്ട് ചെയ്യാൻ ശേഷിക്കുന്നവർ എത്രയും വേഗം തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് മുന്നിൽ എത്തണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു ഡ്യൂട്ടിക്ക് എത്താത്തവർക്കെതിരെ ദുരന്ത നിവാരണ നിയമത്തിലെ പ്രസക്ത വകുപ്പുകൾ പ്രകാരം നടപടിയെടുക്കുമെന്ന് കലക്ടർ മുന്നറിയിപ്പ് നൽകി

കഴിഞ്ഞ മെയ് മുതൽ ഒമ്പത് ലക്ഷത്തിലധികം ഇന്ത്യക്കാർ വിവിധ മാർഗ്ഗങ്ങളിലൂടെ തിരിച്ചെത്തിയെന്നും ഒന്നേകാൽ ലക്ഷത്തോളം പേർ ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയതായും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

വന്ദേഭാരത് അഞ്ചാംഘട്ടം കൂടുതൽ പൌരന്മാർക്ക് പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി അറിയിച്ചു രുമ ദേശീയ പതാക രൂപകല്പന ചെയ്ത പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന പിംഗാലി വെങ്കയ്യയുടെ ജന്മ വാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി എം

രാജ്യത്തിന്റെ അഭിമാനത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമായ ദേശീയ പതാകയുടെ രൂപകല്പനയ്ക്ക് രാഷ്ട്രം മുഴുവൻ പിംഗാലി വെങ്കയ്യയോട് കടപ്പെട്ടിരിക്കുന്നതായി ഉപരാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു രേര പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം തൊഴിലന്വേഷകരെ തൊഴിൽ നിർമ്മാതാക്കളാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയം എല്ലാ ഇന്ത്യക്കാരുടേയും അഭിലാഷങ്ങളുടെ സമാഹാരമാണെന്നും അദ്ദേഹം സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തണിൽ പറഞ്ഞു പഠനം ചോദ്യം ചെയ്യൽ പരിഹരണം എന്നിവ ജീവിതത്തിൽ എന്നും നിലനിർത്തേണ്ട മൂന്ന് കാര്യങ്ങളാണെന്ന് പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട് പറഞ്ഞു രുമ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണത്തിന് പുറമെ പ്രഭാത ഭക്ഷണവും നൽകാൻ നിർദ്ദേശമുണ്ട് പോഷക സമൃദ്ധമായ പ്രഭാത ഭക്ഷണം നൽകുന്നത് കുട്ടികളുടെ ബുദ്ധിപരമായ ശേഷി വർദ്ധിപ്പിക്കുമെന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം പാകം ചെയ്ത ഭക്ഷണം നൽകാൻ കഴിയാത്ത പക്ഷം നിലക്കടല അല്ലെങ്കിൽ കാബൂളി കടലയും ശർക്കരയും ഒപ്പം പ്രാദേശികമായി ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും നൽകാവുന്നതാണ് ഇതിന് പുറമെ സ്കൂളുകളിൽ പരിശീലനം ലഭിച്ച സാമൂഹ്യ പ്രവർത്തകരെയും കൌൺസലർമാരെയും നിയോഗിക്കാനും ശുപാർശയുണ്ട് എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളെ കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാക്കും

ആരോഗ്യ കേന്ദ്രങ്ങൾ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും

ഏലംകുളം മാറാക്കര വളവന്നൂർ തൃപ്രങ്ങോട് മൂർക്കനാട് തേവർ കടപ്പുറം പാലപ്പെട്ടി എന്നിവിടങ്ങളിലാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വരുന്നത് എല്ലാ കേന്ദ്രങ്ങളും വനിതാ ശിശുസൌഹൃദ രീതിയിലാണ് നവീകരിച്ചിരിക്കുന്നത്

മുരളീധരൻ ഡൽഹിയിൽ ഉപവാസം ആരംഭിച്ചു

ജെ

ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി പി

അതേസമയം സ്വർണ്ണക്കടത്ത് കേസ് കള്ളക്കടത്തിനപ്പുറം ഗുരുതരമാണെന്നും അന്വേഷണ ഏജൻസികൾ അത് കണ്ടെത്തുമെന്നും അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ വേണ്ട സഹായങ്ങൾ കാലതാമസം കൂടാതെ നൽകിയിട്ടുണ്ടെന്നും മുരളീധരൻ സ്വകാര്യ വാർത്താ ചാനലിനോട് പറഞ്ഞു രുമ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ രാജിയും സി ബി ഐ അന്വേഷണവും ആവശ്യപ്പെട്ട് യു ഡി എഫ് നാളെ സ്പീക്ക് അപ് കേരള സത്യഗ്രഹം നടത്തും രാവിലെ ഒമ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ യു

എഫ് നേതാക്കൾ വീടുകളിലും ഓഫീസുകളിലും സത്യഗ്രഹം അനുഷ്ഠിക്കും സംസ്ഥാനതല സത്യഗ്രം എ

സി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഉദ്ഘാടനം ചെയ്യും സമാപന ചടങ്ങ് കെ സി വേണുഗോപാൽ എം പിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് രദര ആലുവയിൽ നാണയം വിഴുങ്ങി കുട്ടി മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് മന്ത്രി കെ കെ ശൈലജ ഉത്തരവിട്ടു സംഭവം അതീവ ദൌർഭാഗ്യകരമാണെന്നും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു

വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു

കുഞ്ഞിനെ ആദ്യം ആലുവയിലും തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലും എത്തിച്ചു അവിടെ നിന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റുകയായിരുന്നു വീട്ടിലെത്തിച്ച ശേഷമാണ് കുട്ടി മരിച്ചത് രുമ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ നടക്കാൻ പാടില്ലാത്തതാണെന്നും സംഭവത്തിൽ ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ദേര മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയ്ക്ക് മറ്റന്നാൾ തുടക്കമാകും

ദേദ സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച മുതൽ നിയന്ത്രണങ്ങളോടെ മത്സ്യബന്ധനം നടത്താനാവുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു കടൽക്ഷോഭമുണ്ടായാൽ മീൻപിടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തും രുമ കൃഷിമന്ത്രി വിളിപ്പുറത്ത് എന്ന പദ്ധതിയുടെ ഭാഗമായി അടുത്ത ബുധനാഴ്ച വൈകിട്ട് മൂന്നുമുതൽ മന്ത്രി വി

ഫേസ്ബുക്ക് ലൈവ് പേജിലൂടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് രുര സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാൽ സംസ്ഥാനത്താകെ അതീവ ജാഗ്രത തുടരണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി